വ്യാപര സംഘടനകൾ സ്വാഗതം പ്രചയ്തു

ജമ്മു കശ്മീരിൽ സുരക്ഷ്യാസ്ഹേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ന് മൂന്ന് ജയ്ഷെ മുഹമ്മദ് ഭൂീകരർ കൊല്ലപ്പെട്ടു

അരുണാചർപ്രദേശിൽ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന വിഷയത്തിൽ ഇന്ന് സർവ്വകക്ഷിയോഗം

സമാപനം

സൈനികരുടെ മഹത്തായ സേവനം അനുസ്മരിച്ചാണ് സ്മാരകം രൂപകല്പന ചെയ്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

ദേശീയ സൈനിക സ്മാരകം സന്ദർശിക്കുന്നത് തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്നതിനു തുല്യമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മൻ കി ബാത്തിൽ സൂചിപ്പിച്ചിരുന്നു സ്വാതന്ത്ര്യത്തിനുശേഷം രാജൃത്തിനു വേണ്ടി ജീവത്യാഗം വരിച്ച ജവാൻമാരോട്ടുള്ളൂ രാഷ്ട്രത്തിന്റെ കൃതജ്ഞതയുടെ പ്രതീകമാണ് സ്മാര്ക്കു് മൂന്നു വൃത്തങ്ങളിലായി രൂപകല്പന ചെയ്തിട്ടുള്ള സ്മാരക്ടത്തിൽ ഓരോ സൈനികന്റെയും ജനനം മുതൽ രക്തസാക്ഷിത്വം പ്പൂരയുള്ള ജീവിതയാത്ര ചിത്രീകരിച്ചിട്ടുണ്ട് സൈനിക്കൂന്റെ അമരത്വം സാഹസികതയും ധൈരൃവും ധീരകൃതൃങ്ങൾ എന്നിവയാണ് ഗ്യാലറിയുള്ളത് രാജ്യത്തിനുവേണ്ടി ഏറ്റവ്വൂക്യമഹത്തായി രക്തസാക്ഷിത്വം വരിച്ച സൈനികരുടെ പേരുകൾ സുവർണ്ണാക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ സായുധ സേനയിലെ ഇരുപത്തയ്യായിരത്തിലധികം വീരസേനാനികളാണ് ജീവത്യാഗം നടത്തിയിട്ടുള്ളത്

രാഷ്ട്രീയത്തിനതീതമായി ദേശീയ മുൻഗണനാ വിഷയങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ഉച്ചുകോടിയുടെ പ്രമേയം രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി രവിശങ്കർ പ്രസാദ് പീയൂഷ് ഗോയൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുളള പ്രമുഖരും അഭിസംബോധന ചെയ്യും

കുറഞ്ഞ ചെലവിലുള്ള വീടുകൾക്കും ഫ്ളാറ്റുകൾക്കും ജി എസ് ടി നിരക്ക് കുറയും ചെലവ് കുറ്റുഞ്ഞ ഭ്വനനിർമ്മാണത്തിനുള്ള ജി എസ് ടി അഞ്ചു ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനമാക്കി കുറച്ചു പുതിയ നിരക്ക് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരും ലോട്ടറി നികുതി സംബന്ധിച്ച വിഷയം മന്ത്രിതല സമിതി വീണ്ടും പരിഗണിക്കും ജി എസ് ടി കൌൺസിൽ തീരുമാനം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിവിധ സംഘടനകൾ സ്വാഗതം ചെയ്തു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നികുതി ഇളവ് നേട്ടമായിരിക്കുമെന്ന് ഇന്ത്യൻ വ്യവസായ കോൺഫെഡറേഷൻ അഭിപ്രായപ്പെട്ടു

ഏറ്റുമുട്ടലിൽ ഗുൽഗാം ഡി

പി അമൻ താക്കൂർ വീരമൃത്യു വരിച്ചു ഭീകരരുടെ സാന്നിധ്യം അറിഞ്ഞതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഏറ്റുമുട്ടലുണ്ടായത്

ആർട്ടിക്കിളിന്റെ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജി സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട് വ്യാജ പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്ന് ഗവർണറുടെ വക്താവ് രോഹിത് കൻസാൽ ജനങ്ങളോട് അഭ്യർഥിച്ചു

സംസ്ഥാനത്ത് ഭൂസ്വത്ത് വാങ്ങാൻ ജമ്മു കശ്മിരിന് പുറത്തുള്ളവരെ ഈ വകുപ്പ് തടയുന്നു

ആർ

എഫ് ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും

വിഷയത്തിൽ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കാൻ സമുദായ സംഘടനകളുടെ യോഗവും ഇന്ന് ചേരും സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ തുടർ നടപടിയിൽ എടുക്കില്ലെന്ന് ഗവൺമെന്റ് ആവർത്തിച്ച് വൃക്തമാക്കിയിട്ടുണ്ട് അതിനിടെ സംസ്ഥാനത്തിനുണ്ടായ അക്രമ സംഭവങ്ങൾ അന്വേഷിക്കാൻ ഗവൺമെന്റ് കമ്മീഷണറെ നിയോഗിച്ചു ശാന്തരായിരിക്കാൻ ജനങ്ങളോട് ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു

കേരള നിയമസഭ സംഘടിപ്പിച്ച വിദ്യാർത്ഥി പാർലമെന്റ് ശനിയാഴ്ചയാണ് ആരംഭിച്ചത് രണ്ടു ദിവസങ്ങളിലായി പ്തീനറി സമ്മേളനുങ്ങളും സംവാദങ്ങളും നടന്നു സുസ്ഥിരവികസനത്തിനും ല്യോക്സ്സ്മാധാനത്തിനും ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സാധ്യതകളെക്കുറിച്ചുള്ള അവബ്ദോധം സൃഷ്ടിക്കുകയാണ് വിദ്യാർത്ഥി പാർലമെന്റിന്റെ ലിക്ഷ്യം

ആർ ടി

തിരുവനന്തപുരം എറണാകുളം റൂട്ടിലും തിരുവനന്തപുരം എറണാകുളം നഗരസമീപ പ്രദേശങ്ങളിലുമാണ് സർവ്വീസ്

തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് കളിയാക്കാവിള പേരൂർക്കട നെടുമങ്ങാട് പോത്തൻകോട് വെഞ്ഞാറമൂട് കോവളം ടെക്നോപാർക്ക് ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കാനുള്ള തീരുമാനം എടുത്തതെന്ന മന്ത്രി എ

ശശീന്ദ്രൻ പറഞ്ഞു

സ്വകാര്യ മേഖലയിൽ ലഭിക്കന്ന ഖാദി മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതാണ് ഖാദി എന്ന പേരിലാണ് ഇത് വിൽപ്പന നടത്തുന്നത് ഇതിന്റെ നഷ്ടം ഖാദി ബോർഡിനാണ് ഖാദി തൊഴിലാളികൾക്ക് തൊഴിലും ന്യായമായ കൂലിയും നൽകി സംരക്ഷിക്കുന്നതിനാവശൃമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഖാദി തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ ഗവൺമെന്റ് പരിരക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു

ആരോഗൃമ്പേ്പല്യുടെ പുരോഗതിക്ക് ആവശ്യമായ അടിസ്ഥാനൃസ്ന്കര്യങ്ങൾ ഉത്തർപ്രദേശിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ശ്രീ കോവിന്ദ് വ്യക്തമാക്കി ലക്നൌവിൽ സ്വകാര്യ ആശുപത്രിയായ് അപ്പോളോ മെഡിക്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി

ആവേശകരമായ മത്സരത്തിൽ അവസാന പന്തിലായിരുന്നു ഓസിസിന്റെ വിജയം കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

കളിയുടെ അവാസനം ഒരു പന്തിൽ രണ്ടു റൺ എന്ന നിലയിലായി

പാറ്റ് കമ്മിൻസും ജേ റിച്ചാഡ്സണുമാണ് ഉമേഷ് യാദവിന്റെ അവസാന ഓവറിലെ അവസാന പന്തിൽ ഓസിസിനെ വിജയത്തിലെത്തിച്ചത്

ഇതിന്റെ ഉദ്ഘാടനം ഇന്നലെ അഫ്ഗാനിസ്ഥാനിലെ സരൻജ് പട്ടണത്തിൽ നിർവഹിച്ചു വാണിജൃ മേഖലയിൽ ഇന്ത്യയുടെയും ഇറാന്റേയും അഫ്ഗാനിസ്ഥാന്റേയും പരസ്പര സഹകരണമാണ് ഇതുവഴി സാധ്യമാകുന്നതെന്ന് അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷറഫ് ഗനി പറഞ്ഞു കാബൂളും ഇന്ത്യയും തമ്മിൽ വ്യോമമാർഗം വൃാപാരം ആരംഭിച്ചതോടെ നാല്പത് ശതമാനം വളർച്ച നേടിയതായി ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ പറഞ്ഞു രാജ്യാന്തരതലത്തിൽ മികച്ച വൃവസായ സൌഹൃദം നിലനിർത്തുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്